നിന്ന് ഖാരിഫ് വിളകൾ താങ്ങുവില അടിസ്ഥാനത്തിൽ സംഭരിക്കുന്നത് തുടരുമെന്ന് കേന്ദ്രം

ഉപ്പുവെള്ള ശുദ്ധീകരണ പ്ലാന്റ് സങ്കര ഊർജോൽപാദന പാർക്ക് പാൽ സംസ്കരണ പാക്കിംഗ് പ്ലാന്റ് എന്നി പദ്ധതികളും പ്രധാനമന്ത്രി തുടക്കം കുറിക്കുന്നവയിൽ ഉൾപെടുന്നു കച്ചിലെ ദോർഡോയിലും അദ്ദേഹം സന്ദർശനം നടത്തും കച്ചിലെ മാന്ദ്വിയിലാണ് സമുദ്രജലത്തെ കുടിവെള്ളമാക്കി മാറ്റുന്ന പ്ലാന്റ് സ്ഥാപിക്കുന്നത്

വിഘാകോട്ടിലെ സങ്കര ഊർജോൽപാദന പാർക്ക് രാജ്യത്തെ ഏറ്റവും വലിയ പുനരുപയോഗ ഊർജോൽപാദന ക്വേന്ദ്രമാണ്

പഞ്ചാബിൽ നിന്നുള്ള കർഷക സമരം തുടരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് മന്ത്രാലയത്തിന്റെ വിശദീകരണം വിശദവിവരങ്ങളുമായി കിരൺ ശങ്കർ

പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് തെലങ്കാന ഉത്തരാഖണ്ഡ് തമിഴ്നാട് ചണ്ഡിഗഡ് ജമ്മു കശ്മീർ കേരളം ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് ഒഡീഷ സംസ്ഥാനങ്ങളിൽ നെല്ലൂ സംഭരണം പുരോഗമിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ സംഭരണത്തിൽ മികച്ചു വർധനയുണ്ട്

എണ്ണക്കുരുക്കളും സംഭരിക്കുന്നതിലും ശ്രദ്ധേയ പുരോഗതിയുണ്ട്

ഉത്തരാഖണ്ഡിൽ നിന്നുള്ള കർഷകരുടെ സംഘവും കേന്ദ്ര കൃഷി മന്ത്രി നരേന്ദ്ര സിംഗ് തോമറിനെ ഇന്നലെ ന്യൂഡൽഹിയിൽ സന്ദർശിച്ച് പിന്തുണയറിയിച്ചു

കർഷകർ നിയമങ്ങൾ മനസിലാക്കുകയും പിന്തുണ അറിയിക്കുകയും ചെയ്തതായി മന്ത്രി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു കൃഷി കർഷകക്ഷേമ സഹമന്ത്രി കൈലാഷ് ചൌധരി ഉത്തരാഖണ്ഡ് വിദ്യാഭ്യാസമന്ത്രി അരവിന്ദ് പാണ്ഡെ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു ഭാരതീയ കിസാൻ യൂണിയൻ മാൻ വിഭാഗം ഉൾപ്പെടെ രണ്ട് സംഘങ്ങൾ നേരത്തെ കേന്ദ്രത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു

ബീഹാറിലെ പട്ന ജില്ലയിൽ കാർഷിക നിയമങ്ങളെ പിന്തുണച്ച് ബി ജെ പി ആരംഭിച്ച പ്രചാര്ണ് പ്രിപാടിയെ അഭിസംബോധന ചെയ്യു കയായിരുന്നു അദ്ദേഹംകൂർഷക പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രത്യേക സംഘങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ ലക്ഷ്യം വിജയിക്കാൻ സർക്കാർ അനുവദിക്കില്ലെന്നും ശ്രീ രവിശങ്കർ പ്രസാദ് പറഞ്ഞു

ജെ

ഇതോടനുബന്ധിച്ച് വിവിധ ഇടങ്ങളിൽ പത്രസമ്മേളനങ്ങളും കർഷക കൂട്ടായ്മകളും സംഘടിപ്പിക്കുമെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു കേന്ദ്ര സംസ്ഥാന മന്തിമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ പരിപാടിയിൽ പങ്കെടുക്കും

ന്ാളെ രാവിലെയും ഉച്ചയ്ക്കു ശേഷവുമായി രാജ്യത്തെ മുൻനിര വൃവസായികളുമായി ധനമന്ത്രി തന്റെ ബജറ്റ് കൂടിയാലോചനകൾ നിട്ടത്തുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു

പ്രശ്നബാധിത ബൂത്തുകൾ ഏറ്റവും കൂടുതലുള്ളതും ഈ ഘട്ടത്തിലാണ്

ശ്രീരാമകൃഷ്ണൻ കെ

സി സി പ്രസിഡൻറ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ലീഗ് സംസ്ഥാന അധ്യക്ഷൻ ഹൈദരലി ശിഹാബ് തങ്ങൾ എന്നിവർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി എൽഡിഎഫ് ഐതിഹാസിക വിജയം നേടുമെന്ന് മുഖ്യമന്ത്രി പിണരിയി വിജയൻ പറഞ്ഞു ഇടതു ദൂർഭരണത്തിനെതിരേയുള്ള ക്ട്രിനു ്വിധിയെഴുതുമെന്നും യുഡിഎഫ് റെക്കോർഡ് വിജയം സ്വിത്തമാക്കുമെന്നും കെപിസിസി അധ്യക്ഷൻ വ്യക്തമാക്കി

പഞ്ചായത്ത് മുനിസിപ്പൽ ചട്ടങ്ങൾ പാലിക്കാതെയാണ് നേരത്തെയുള്ള ഉത്തരവെന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി

ജെ പി സ്ഥാനാർത്ഥികളെ പ്രധാനമന്ത്രി നരേന്ദ്രമോ ദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും അഭിനന്ദിച്ചു

ജെ

പിയുടെ ഏഴ് പേരും സി

ഐ എം ആർ

പി എന്നിവ യിലെ ഓരോ സ്ഥാനാർത്ഥികളും വിജയിച്ചു

മറ്റു ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് വൻതുക ഓൺലൈനായി കൈമാറ്റം ചെയ്യുന്ന സംവിധാനമാണ് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് സിസ്റ്റം എന്ന ആർ

സമാന ഇടപാടായ എൻ ഇ

ഇന്ത്യയുടെ പ്രവർത്തനങ്ങളിൽ ബാങ്കിന് ഒരുപാട് അഭിമാനമുണ്ടെന്ന് ബാങ്കിന്റെ് മുതിർന്ന ജലശുചീകരണ വിദഗ്ധനായ സാവിയർ ബുഷേൻ പറഞ്ഞു

അൺ റിസർവ്ഡ് ടിക്കറ്റുകൾ അനുവദിക്കുന്നതായി ചില മാധ്യമങ്ങളിൽ വാർത്തകൾ വന്ന പശ്ചാത്തലത്തിലാണ് വിശദീകരണം